രാജ്യത്തിന്റെ സാമ്പത്തികവും അടിസ്ഥാനപരവുമായ വികസനത്തിന് സമുദ്ര സുരക്ഷക്ക് നിർണ്ണായക പങ്കുള ണ്ടന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

മുൻ പ്രധാനമന്ത്രി മൻമോഹൻസിംഗിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും എസ് പി ജി സംരക്ഷണം പുനസ്ഥാപിക്കണമെന്ന് കോൺഗ്രസ്

ജാമ്യം തേടി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെ വിശദീകരണം തേടി

പൊലീസ് ലാത്തി ചാർജിൽ ഷാഫി പറമ്പിൽ എം

എയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു

രാജ്യത്ത് സമുദ്ര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നത് നാവികസേനയാണെന്നും ഇതിനായി സേന അത്യന്താധുനിക സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി പറഞ്ഞു കണ്ണൂരിലെ ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡന്റസ് കളർ അവാർഡ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മികച്ച സേവനം കാഴ്ചവെക്കുന്ന സൈനിക കേന്ദ്രങ്ങൾക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ് പട്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പതാകയാണ് പ്രസിഡന്റ്സ് കളർ

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപളളി നാവിക സേന മേധാവി അഡ്മിറൽ കരം വീർ സിംഗ്

മഹാരാഷ്ട്രയിലെ കർഷകർക്ക് കേന്ദ്രം ഇടക്കാല സഹായം അനുവദിച്ചിട്ടുള്ളതായും അദ്ദേഷം അറിയിച്ചു കനത്ത മഴമൂലം ഉായ കൃഷിനാശം നേരിട്ടു ക്ലൂർ വിലയിരുത്തിയ ശേഷം സഹായം നൽകുമെന്നും പാർലമെന്റിനു പുറത്ത് മാധ്യമങ്ങളെ ശ്രീ

കാലാകാലങ്ങളായി വരുന്ന എ ഐ

അധ്യക്ഷൻമാർ സ്മാരകത്തിന്റെ സ്ഥിരം അംഗങ്ങളായിരുന്നു ഈ പതിവിനാണ് മാറ്റം വരുന്നത്

ബിൽ പാസായതോടെ ട്രസ്റ്റിന്റെ രാഷ്ട്രീയ സ്വഭാവം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതായി ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മന്ത്രി പ്രഹ്ളാദ് സിംഗ് പട്ടേൽ അറിയിച്ചു

പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ന് അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത് ശ്രീലങ്കൻ സന്ദർശനം നടത്തുന്ന വിദേശകാര്യ മന്ത്രി എസ്

പ്രസിഡന്റിനെ അഭിനന്ദിച്ചുകൊുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക സന്ദേശവും ശ്രീ

സമാധാനം വികസനം സമൃദ്ധി സുരക്ഷ എന്നീ വിഷയങ്ങളിൽ സഹകരണം പ്രതീക്ഷിക്കുന്നതായി സന്ദേശത്തിൽ അറിയിച്ചു പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയുമായുംവിദേശകാര്യ മന്ത്രി കൂടിക്കാഴ്ച നടത്തി

പനാജിയിലെ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന സമ്മേളനം

മഹാരാഷ്ട്രയിലെ കർഷക പ്രശ്നം ചർച്ച ചെയ്യാനാണു കൂടിക്കാഴ്ച എന്നാണ് എൻസിപിയുടെ വിശദീകരണം

എൻസിപി കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചയും ഇന്ന് നടക്കും മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നാളെ അവസാനിക്കുമെന്ന് പാർട്ടി നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു

വ്യക്ത സെക്രട്ടറിമാർക്കായിരിക്കും ഇനി മന്ത്രിമാരുടെ ചുമതല

ആറു മാസം വരെയുള്ള കിടത്തി ചികിത്സക്ക് ഉൾപ്പെടെ സാധാരണ വിസ എളുപ്പത്തിൽ മെഡിക്കൽ വിസയാക്കാം ദുബായിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്

യു നിയമസഭാ മാർച്ചിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ ഷാഫി പറമ്പിൽ എം

വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് കടുത്ത പ്രതിപക്ഷ ബഹളത്തിന് ഇടയാക്കി ഇതേ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ഡയസിൽ കയറി മുദ്രാവാകൃം വിളിച്ചതോടെ സ്പീക്കർ ഇരിപ്പിടം വിട്ടുപോയി പിന്നീട് തിരികെയെത്തിയ സ്പീക്കർ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം പിരിയുന്നതായി അറിയിക്കുകയായിരുന്നു

എ അടക്കമുള്ള കെ

യു പ്രവർത്തകർക്കു നേരെ പോലീസ് നരനായാട്ടാണ് നടത്തിയതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നല്കിയ വി

ജനപ്രതിനിധികളെ അടിച്ചൊതുക്കുന്ന നയം ഗവൺമെന്റിനില്ലെന്നും മന്ത്രി ഇ

ഇത് അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കു നേരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു

എ യ്ക്കു പരിക്കേറ്റ സംഭവത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെന്റു ചെയ്താർത് മാത്രമേ അന്വേഷണത്തെ സ്വാഗതം ചെയ്യാനാകൂ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

മല്യാള ഭാഷയുടെയും സംസ്ക്കാരത്തിന്റെയും വളർച്ചക്ക് പിന്നിൽ പ്രവർത്തിച്ച സാംസ്കാരിക നായകൻമാരുടെ പേരിൽ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങൾ എല്ലാ നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു